പ്രധാനമന്ത്രി നര്യേന്ദ്ര മോദി കോവിഡ് പാക്സിൻ സ്വീകരിച്ചു

ഉക്രൈയിൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാതാരം വിനീഷ് ഫോഗട്ടിന് സ്വർണ്ണം

ഇന്ന് രാവിലെ ഡൽഹി എയിംസിൽ നിന്നാണ് അദ്ദേഹം ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചത് രാജ്യത്ത് രണ്ടാംഘട്ട കോവിഡ് വാക്സിൻ കുത്തിവെയ്പ്പ് ആരംഭിക്കുന്നതിന്റെ ഭാഗ്രമാട്ടിയാണ് ശ്രീ നരേന്ദ്രമോദി വാക്സിൻ സ്വീകരിച്ചത് സാധിക്കുന്നു എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി പുറിഞ്ഞു കോവിഡിനെതിരേയുള്ള ആഗോള പോരാട്ടം ശക്തിക്പ്പട്ടുത്തുന്നതിന് നമ്മുടെ ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും അതിപ്പേഴത്തിൽ പ്രവർത്തിച്ചത് ശ്രദ്ധേയമാണ്

കേന്ദ്ര ആരോഗ്യമന്ത്രാലയത്തിന്റെ മാർഗനിർദേശമനുസരിച്ച് സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുത്ത സ്ഥകാരൃ ആശുപത്രികളിലും വാക ്സിനെടുക്കാൻ സൌകര്യമുണ്ട്

വാക്സിനെടുക്കാൻ സൌകര്യപ്രദമായ കേന്ദ്രങ്ങളും ദിവസവും തിരഞ്ഞെടുക്കാം പൊതുജനങ്ങൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യാം

രജിസ്ട്രേഷൻ സമയത്ത് ഗൂണഭോക്താവിന്റെ ഫോട്ടോ തിരിച്ചറിയൽ കാർഡിലുള്ള അടിസ്ഥാന വിവരങ്ങൾ എന്നിവ നൽകണം

രജിസ്ട്രേഷൻ സമയത്ത് വാക ്സിനേഷൻ സെന്ററുകളുടെ പട്ടികയും ഒഴിഞ്ഞ സ്തോട്ടുകൾ ലഭ്യമായ തീയതിയും കാണാം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജില്ലാടിസ്ഥാന ത്തിൽ കലക്ടർമാരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടപ ടികൾ

മഹാരാഷ്ട്ര ഛത്തിസ്ഗഡ് കേരളം പഞ്ചാബ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നെത്തുന്നവർ വിമാനത്താവളങ്ങളിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് ഒഡീഷ ആരോഗ്യമന്ത്രി നബാ കിഷോർ ദാസ് അറിയിച്ചു

പഴം പച്ചക്കറി കൃഷി മത്സ്യോൽപാട്ടന്ട് തുടങ്ങിയ മേഖലകൾക്കും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്

നരേന്ദ്രമോദി പറഞ്ഞു

ഡി എഫ് ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്ന് തുടക്കമായി

ഡി എഫ് സീറ്റ് വിഭജനം സംബന്ധിച്ച് ജോസഫ് വിഭാഗവുമായി ഇന്ന് കോൺഗ്രസ് ചർച്ച നടത്തും

ജെ പി സീറ്റ് ചർച്ചുകൾക്ക് ഇന്നലെ കൊച്ചിയിൽ തുടക്കമായി

ഭരണകക്ഷിയായ എഐഎഡിഎംകെയും പ്രതിപക്ഷമായ ഡി എം കെയും തമ്മിലാണ് പ്രധ്നാന മത്സരം ജനങ്ങൾ അധികാരമാറ്റം ആഗ്രഹിക്കുകയാണെന്ന് ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ പറഞ്ഞു

കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ഓൺലൈനായിയായിരുന്നു പ്രഖ്യാപനം

ഇതേ വിഭാഗത്തിൽ മികച്ച നടിയായി ആഡ്രാ ഡേ തെരഞ്ഞെടുക്കപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗവർണർ ഭഗത് സിംഗ് കോശിയാരിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് ഉത്തരാഖണ്ഡ് പഞ്ചാബ് നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി

തുടർന്ന് പുതിയ മേധാവിക്ക് സേനാംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകി

സ്വർണ്ണവിലയിൽ വർദ്ധന

മാവോയിസ്റ്റ് മേഖലാ കമാൻഡർ ആയിരുന്ന ജീവനാണ് ജില്ലാഭരണകൂടത്തിന് മുമ്പാകെ കീഴടങ്ങിയത്

സർക്കാരിനെ അട്ടിമറിച്ച് സൈനിക് ് ഭരണം കൊണ്ടുവന്നതിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേരെയാണ് സൈനിക നടപടി ഉണ്ടായത് റംഗൂൺ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്

ലോക ഏഴാം നമ്പർ താരം ബലാറസിന്റെ വനീസ കലാഡ്സ്കിയയെയാണ് ഫൈനലിൽ ഫോഗട്ട് പരാജയപ്പെടുത്തിയത്